എസ് ടി വിഹിതം നല്കുന്നതിൽ വിവേചനം കാണിക്കുന്നുവെന്ന ആരോപണം തള്ളി ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ

ബ്രിട്ടണിലെ പൊതു തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി ബോറിസ് ജോൺസന്റെ കൺസർവേറ്റീവ് പാർട്ടിക്ക് വിജയ സാധ്യത

ഇന്നലെ ഗസറ്റിൽ വിജ്ഞാപനം പുറപ്പെടുവിച്ചതോടെ നിയമം നിലവിൽ വന്നതായി ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു

ഹിന്ദു സിഖ് ബുദ്ധ ജൈന പാർസി ക്രിസ്ത്യൻ മത വിഭാഗങ്ങളിൽപ്പെട്ടവർക്കാണ് പൌരത്വം ലഭിക്കുക ഭരണഘടനയുടെ ആറാം പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള അസം മേഘാലയ മിസോറം ത്രിപുര എന്നീ ഗോത്രമേഖലകൾക്ക് ഭേദഗതി ബാധകമല്ല നുഴഞ്ഞുകയറ്റക്കാരെയും അഭയാർത്ഥികളെയും തമ്മിൽ വേർതിരിക്കേണ്ടതുണ്ടെന്നും പൌരത്വ നിയമ ഭേദഗതി വേണമെന്നും ഗവൺമെന്റ് വ്യക്തമാക്കി രാജ്യസഭ ബുധനാഴ്ചയും ലോക സഭ തിങ്കളാഴ്ചയുമാണ് പൌരത്വ ഭേദഗതി ബിൽ പാസാക്കിയത്

തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ച് ചില വിഭാഗ്രങ്ങൾ സ്ഥിതിഗതികൾ വഷളാക്കാൻ ശ്രമിക്കുകയാണെന്നും മുഖ്യമാത്തി കുറ്റപ്പെടുത്തി അസം കരാറിലെ ആറാം വകുപ്പ് നടപ്പിലാക്കാൻ പ്രധാന്യമ്ത്തീയും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും ഉറപ്പുനൽകിയിട്ടുണ്ടെന്നും ജീനങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അതേസമയം അൻമീൽ പൌരത്വ നിയമ ബില്ലിനെതിരെ പ്രക്ഷോഭം തുടരുകയാണ് അസം സ്റ്റുഡൻസ് യൂണിയന്റെ നേതൃത്വത്തിൽ ഗുവാഹത്തിയിലെ ലതാസിലിൽ നൂറുക്കണക്കിന് വിദ്യാർത്ഥികൾ പ്രക്ഷോഭത്തിൽ പങ്കെടുത്തു

സമാധാന അന്തരീക്ഷം നിലനിർത്താൻ സൈന്യത്തെയും അസം റൈഫിൾസിനെയും ഗുവാഹത്തി ഡിബ്രുഗർഹ് മോരിഗാവ് തേസ്പൂർ എന്നിവിടങ്ങളിൽ വിന്യസിച്ചിട്ടുണ്ട് ട്രെയിൻ വിമാന സർവ്വീസുകളെ പ്രക്ഷോഭം ബാധിച്ചു

ഓഗസ്റ്റ് മുതൽ ഒരു സംസ്ഥാനത്തിനും വിഹിതം നൽകിയിട്ടില്ലെന്നും ജി

ടി വിഹിതം സംബന്ധിച്ച് സംസ്ഥാനങ്ങളോടുള്ള കടപ്പാട് കേന്ദ്രം മാനിക്കുന്നുവെന്നും ധനമന്ത്രി പറഞ്ഞു ഇന്നലെ രാജ്യസഭയിൽ ധനവിനിയോഗ ബില്ലിന്മേലുള്ള ചർച്ചയ്ക്ക് മറുപടി പറയുകയായിരുന്നു ശ്രീമതി നിർമ്മല സീതാരാമൻ

എസ് ടി കുടിശ്ശിക സംബന്ധിച്ച് ജി എസ് ടി കൌൺസിലിൽ ചർച്ച നടന്നതായും വിഷയം കൈകാര്യം ചെയ്യുന്നതിന് മന്ത്രിതല സമിതി രൂപീകരിച്ചിട്ടുണ്ടെന്നും ധനമന്ത്രി പറഞ്ഞു മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് ധനവിനിയോഗ ബിൽ രാജ്യസഭ ലോക്സഭയിലേക്ക് തിരിച്ചയച്ചു

ജയറാം രമേഷ് സി

എമ്മിലെ കെ

രാഗേഷ് ടി

സി യിലെ മനീഷ് ഗുപ്ത തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു

ന്യൂഡ്ൽഹിയിലെ പ്രവാസി ഭാരതീയ കേന്ദ്രത്തിൽ വിദേശ കാര്യ മന്ത്രമാണ് സംവാദങ്ങൾ സംഘടിപ്പിക്കുന്നത്

ഇന്തോ പസഫിക് ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ പുതീയ പരിപ്രേക്ഷ്യം എന്നതാണ് ഇന്ത്യൻ മഹാസമുദ്ര സംവാദത്തിന്റെട്രാ്പ്രമേയം ഡൽഹി സംവാദത്തിൽ ഇന്തോ പസഫിക് സഹകരണ്ണത്തിലെ മുന്നേറ്റം എന്ന വിഷയം ചർച്ച ചെയ്യും

ലോക്സഭ ബില്ലിന് നേരത്തെ അംഗീകാരം നൽകിയിരുന്നു ഇന്ത്യയിൽ അന്താരാഷ്ട്ര സാമ്പത്തിക സേവന കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനും ഒരു ഏകീകൃത സംവിധാനം സ്ഥാപിക്കാൻ ലക്ഷ്യമിടുന്നതാണ് ബിൽ നിലവിൽ വിവിധ മേഖലകളുടെ നിയന്ത്രണത്തിനായി ആർ ബി ഐ സെബി ഐ ആർ ഡി എ പി എഫ് ആർ ഡി എ എന്നീ വിവിധ ഏജൻസികളാണ് ഉള്ളത് സാമ്പത്തിക സേവന രംഗത്തെ വിവിധ ഇടപാടുകൾ നിയന്ത്രിക്കാനുള്ള ഏകജാലകമായി ഈ അതോറിറ്റി പ്രവർത്തിക്കുമെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബില്ലിന്മേലുള്ള ചർച്ചയിൽ മറുപടി പറഞ്ഞു ധനകാര്യ സേവന രംഗത്ത് ഐ എഫ്

സി പ്രധാന ഹബ്ബായി മാറിക്കഴിഞ്ഞു

എഫ് എസ് സി മുഖേനയാണ് രണ്ട് പ്രധാന ഓഹരിവിപണികളായ ബി

ഇ യും എൻ എസ് ഇ യും പ്രവർത്തിക്കുന്നതെന്നും ഇവ പ്രതിദിനം നാല് ബില്ല്യൺ ഡോളറിന്റെ വ്യാപാരം നടത്തുന്നതായും ധനമന്ത്രി പറഞ്ഞു

മൂന്ന് കൽപിത സർവ്വകലാശാലകൾക്ക് സമ്പൂർണ്ണ കേന്ദ്ര സർവ്വകലാശാല പദവി നൽകുകയാണ് ലക്ഷ്യം സംസ്കൃതത്തിലെ അറിവ് പ്രോത്സാഹിപ്പിക്കാൻ ബിൽ സഹായകമാകുമെന്ന് മാനവ വിഭവ ശേഷി വികസന മന്ത്രി രമേശ് പൊഖ്രിയാൽ നിഷാങ്ക് സഭയിൽ പറഞ്ഞു എല്ലാ ഇന്ത്യൻ ഭാഷകൾക്കും പ്രചാരത്തിൽ തുല്യ പരിഗണന നൽകുമെന്നും കേന്ദ്ര മന്ത്രി അറിയിച്ചു

സ്ഥാനാർത്ഥികളെ പിന്തുണച്ച് പ്രമുഖ നേതാക്കൾ പ്രചാരണ രംഗൂത്ത് സ്ജീവമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മൂന്നാം ഘട്ട വോട്ടെടുപ്പ് ഇൻ്റ്ല് പൂർത്തിയായി

വോട്ടെടുപ്പിന്റെ അന്തിമ കണക്കുകൾ ലഭ്യമായാൽ പോളിങ് ശതമാനത്തിൽ നേരിയ വർദ്ധനയ്ക്ക് സാധ്യതയുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു

ഇന്നലെ ഡിഗയിൽ നടന്ന ദ്വിദിന വ്യാപാരയോഗത്തിന്റെ സമാപന ചടങ്ങിലാണ് ഇത് സംബന്ധിച്ച തീരുമാനം അറിയിച്ചത് പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ ഒരാഴ്ചയ്ക്കകം ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി മംമ്ത ബാനർജി പറഞ്ഞു ബിർദും ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ദിയോച പച്ചാമി കൽക്കരിപ്പാടം ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കൽക്കരി ഖനിയാണ്

ആദ്യ ഘട്ടത്തിൽ ദേവാങ്ഗഞ്ച് ഹരിൻസിംങ്ഗ മേഖലയിൽ കൽക്കരി ഖനനത്തിന് കേന്ദ്ര കൽക്കരി മന്ത്രാലയം അനുമതി നൽകി

എസ് ഡോളറിന്റെ പദ്ധതിയിൽ സഹകരണം ആവശ്യപ്പെട്ട് ബ്രാൻസൺ മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെയുമായി മുംബൈയിൽ കൂടിക്കാഴ്ച് നടത്തി

അന്തിമഫലം ഇന്ന് വൈകുന്നേരത്തോടെ അറിയ്ാം

മേളയുടെ സമാപന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ വൈകുന്നേരം നിശാഗന്ധിയിൽ ഉദ്ഘാടനം ചെയ്യും

സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ മുഖ്യാതിഥിയും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല വിശിഷ്ടാതിഥിയുമാകും

ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിങും വിദേശകാര്യ മന്ത്രി എസ്

ഇരുരാഷ്ട്രങ്ങളുടേയും വിദേശനയം പ്രതിരോധം സുരക്ഷാ വിഷയങ്ങൾ സംബന്ധിച്ച് ഇന്ത്യയിൽ നിന്നുള്ള സംഘം യു എസ് നേതൃത്വവുമായി സമഗ്ര ചർച്ച നടത്തുമെന്ന് വിദേശകാര്യമന്ത്രാലയ വക്താവ് രവീഷ് കുമാർ ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു